ഡി എസ് ടി സി

സംസ്ഥാനം ആവശ്യപ്പെട്ടാൽ ഗൾഫിൽ നിന്നും കൂടുതൽ വിമാനങ്ങൾ സർവ്വീസ് നടത്താൻ തയ്യാറെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ

സ്വന്തം കാലിൽ നില്കാൻ രാജ്യത്ത് പ്ര്യാപ്തമാക്കുകയാണ് ലക്ഷ്യമെന്ന് ധനമന്ത്രി പറഞ്ഞു

നിർമ്മാണ സേവന മേഖലകൾ ഏകീകരിക്കും ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് ഈടില്ലാതെ മൂന്നു ലക്ഷം കോടി രൂപയുടെ വായ്പലഭൃത ഉറപ്പാക്കും

വായ്പ കിട്ടാക്കടമായി പ്രഖ്യാപിച്ച് വ്യവസായങ്ങൾക്കും അർഹതയുണ്ടാകും

മലപ്പുറം ജില്ലയിൽ നിന്നുള്ള മൂന്ന് പേർക്കും വയനാട് പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള രണ്ട് പേർക്കു വീതവും കോട്ടയം കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ള ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത് ഇതിൽ നാല് പേർ വിദേശത്ത് നിന്നും രണ്ട് പേർ ചെന്നൈയിൽ നിന്നും വന്നവരാണ്

സൌദി അറേബ്യയിലെ ജിദ്ദയിൽ നിന്നും കുവൈറ്റിൽ നിന്നും കരിപ്പൂരേക്കാണ് രണ്ട് വിമാനങ്ങൾ

കൂടുതൽ വിവരങ്ങളുമായി

ഈ സംസ്ഥാനങ്ങളിൽ രോഗമുക്തി നേടുന്നവരുടെ നിരക്ക് ദേശീയ ശരാശരിയേക്കാൾ കുറവായതിനാൽ രോഗികളുടെ എണ്ണം കൂടുന്നത് നിയന്ത്രണ വിധേയമായിട്ടില്ല

ന്യൂസ് ഡസ്ക് ആകാശവാണി